ശബരിമല നട തിങ്കളാഴ്ച തുറക്കും

ഇന്ന് അർദ്ധരാത്രി മുതൽ ചൊവ്വാഴ്ച വരെ നിരോധനാജ്ഞ

ജോക്കോവിച്ച് റോജർഫെഡറർ പോരാട്ടം

ടി യിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്ക് പ്രധാനമന്ത്രി രണ്ട് ശതമാനം പലിശ ഇളവ് പ്രഖ്യാപിച്ചു

ഉൽപ്പന്നങ്ങളും ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളിൽ നിന്നാകണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു

ന്യൂഡൽഹിയിൽ സാമ്പത്തിക ഉൾചേർക്കൽ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ ഡിജിറ്റൽ സാമ്പത്തിക വ്യാപാര രംഗത്തെ ഒരു ട്രില്യൻ ഡോളറിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് അതിനിടെ ആധാറിനായി നൽകിയിരിക്കുന്ന വിവരങ്ങൾ സുരക്ഷിതവും ഭദ്രവുമായിരിക്കുമെന്നും ശ്രീ

ഡാറ്റാ അനാലിസിസ് നിർമ്മിത ബുദ്ധി തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ നേതൃസ്ഥാനത്തേക്ക് ഉയരണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ബല്ലാരി ശിവമോഗ മാണ്ഡ്യ എന്നീ മൂന്ന് ലോക്സഭ സീറ്റുകളിലേക്കും രാമനഗര ജാംഘണ്ഡി നിയമസഭാ സീറ്റിലേക്കുമുള്ള വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്

ഋഷികേശിലെ എയിംസിന്റെ പ്രഥമ ബിരുദദാന സമ്മേളനത്തെ രാഷ്ട്രപതി അൽസമയത്തിനകം അഭിസംബോധന ചെയ്യും നേരത്തെ ഹരിദ്വാറിലെത്തിയ അദ്ദേഹം ഉത്തരാഖണ്ഡ് വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച ജ്ഞാൻ കുംഭ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

സൌകര്യപ്രദമായി ബിസിനസ് ആരംഭിക്കാൻ കഴിയുന്ന സാഹചര്യമൊരുക്കാനാണ് ഓർഡിനൻസ് ഇറക്കുന്നത്

ശുപാർശകൾ നേരത്തെ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അംഗീകരിച്ചതാണ്

സംസ്ഥാനത്ത് ഇതാദ്യമായി പോളിംഗ് ഉദ്യോഗസ്ഥർക്ക് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനായി ഇലക്ഷൻ കമ്മീഷൻ ഇ പോസ്റ്റൽ ബാലറ്റ് നടപ്പിലാക്കുന്നു എന്ന പ്രത്യേകതയും ഇത്തവണത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിനുണ്ട്

കീഴടങ്ങിയവരുടെ സുരക്ഷ ഉറപ്പു വരുത്തുമെന്ന് പൊലീസ് വൃത്തം അറിയിച്ചു

നടപ്പു സാമ്പത്തിക വർഷത്തിൽ ഇരുപത്തി ഏഴ് ലക്ഷം പ്യേരാണ് ഈ പദ്ധതിയിൽ പങ്കാളികളായത് ഉത്തർപ്രദേശ് പ്രബിഹാർ ആന്ധ്രാപ്രദേശ് മഹാരാഷ്ട്ര കർണാടക എന്നീ സ്ംസ്ഥാനങ്ങളാണ് പദ്ധതി പങ്കാളിത്തത്തിൽ മുൻ ് നിരയിലുള്ളതെന്ന് കേന്ദ്രധനകാര്യ മന്ത്രാലയം അറിയിച്ചു

മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിൽ പോലീസിന് വലിയ ഉത്തരവാദിത്തമാണുള്ളത് പോലീസിൽ ഒരു ജാതിയും ഒരു മതവും മാത്രമേയുള്ളൂ അത് പോലീസ് എന്നത് മാത്രമാണെന്നും ശ്രീ

പി നാലാം ബറ്റാലിയനിൽ പരിശീലനം പൂർത്തിയാക്കിയ പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സ്വീകരിച്ചുകൊണ്ട് അഭിവാദ്യം സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി

കൂടുതൽ വിവരങ്ങളുമായി റിനൽ വ്യാഴാഴ്ചയാണ് തമിഴ്നാട് തീരത്തും തെക്കൻ കേരളത്തിലും പുതുച്ചേരിയിലും ആന്ധ്രയുടെ തെക്കൻ തീരത്തും വടക്കുകിഴക്കൻ കാലവർഷം എത്തിയത് തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ മധ്യഭാഗത്ത് ചൊവ്വാഴ്ചയോടെ ന്യൂനമർദ്ദം രൂപംകൊള്ളാൻ സാധ്യതയുണ്ട് ഇതിനെ തുടർന്ന് എട്ടാം തീയതിയോടെ കേരളത്തിൽ കൂടുതൽ മഴ പെയ്യാൻ സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു അതിനിടെ തിരുവനന്തപുരത്ത് ഇന്നലെ വൈകുന്ന്രൂത്തോടെ ശക്തമായ മഴ ലഭിച്ചു

കരമനയാറിന്റെയും നെയ്യാരിന്റെയും തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നിൽകിയിട്ടുണ്ട്

ന്യൂസ്ഡെസ്ക് ആകാശവാണി

റോഡിൽ മഞ്ഞ് മൂടികിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്

ഇതിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു

കാർട്ടർ ഫൈനലിൽ ഇംഗ്ലീഷ് താരം ടോബി പെന്റിയേ കീഴ്പ്പെടുത്തിയാണ് സുഭാൻകർ സെമിഫൈനലിൽ കടന്നത്

കാർട്ടർ ഫൈനലിൽ ജാപ്പനീസ് താരം ഉകയി നിഷിക്കോരിയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ഫെഡറ്റർ തോൽപ്പിക്കുകയായിരുന്നു